സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു

തന്റെ പാർട്ടിയും ഗവൺമെന്റും ജമ്മുകശ്മീരിനെ പരാമർശിക്കു മ്പോഴെല്ലാം പാക് അധീന കശ്മീരും അക്സായി ചിന്നും സ്ഥാഭാ വികമായും അതിലുൾപ്പെടുമെന്ന് ബില്ലും പ്രമേയവും പരിഗണ നക്കെടുക്കവെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വൃക്തമാക്കി

ഇന്ത്യയും പാക്കിസ്ഥാനുമിടയിൽ ഉഭയ്കക്ഷി വിഷയമാണ് ജമ്മു കശ്മീരെന്ന് ഗവ ആവർത്തിച്ച് പ്രപ്യാപിക്കുമ്പോൾ ഇത്തരം ബില്ലും പ്രമേയവും കൊണ്ടുവരാൻ ഗവൺമെന്റിന് അധി കാരമുണ്ടോയെന്ന് കോൺഗ്രസ് സഭാ നേതാവ് അധിർ രഞ്ജൻ ചൌധരി ചോദിച്ചപ്പോഴായിരുന്നു അമിത് ഷായുടെ പ്രതികരണം കശ്മീരിന്റെ കാര്യത്തിൽ ഷിംലയിലും ലാഹോറിലും ഒപ്പുവെച്ച രണ്ട് കരാറുകളുണ്ടെന്നും ചൌധരി പറഞ്ഞു കശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്രസഭ കൈകാര്യം ചെയ്യണ മെന്ന വാദത്തെ കോൺഗ്രസ് പിന്തുണക്കുന്നുണ്ടോയെന്ന് അമിത് ഷാ ചോദിച്ചു മുതിർന്ന് നേതാക്കളെ അറസ്റ്റുചെയ്ത് ജമ്മു കശ്മീരിൽ അപ്ര ഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് ഡിഎംകെയിലെ ടി ആർ ബാലു കുറ്റപ്പെടുത്തി

അതിനിടെ കശ്മീർ പ്രമേയം വലിച്ചു കീറിയതിന് കോൺഗ്രസ് അംഗങ്ങളായ ടി എൻ പ്രതാപനെയും ഹൈബി ഈഡനെയും സ്പീക്കർ ഓം ബിർള ശാസിച്ചു

ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് പ്രമേയം വലിച്ചു കീറി ഇവർ നടുത്തള ത്തിലിറങ്ങിയത് നടപടി സഭക്കു ചേർന്നതല്ലെന്നും ആവർത്തി ക്കരുതെന്നും സ്പീക്കർ പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തക സമിതി ഇന്ന് വൈകീട്ട് ഡൽഹി യിൽ ചേരും

വിഷയം ചർച്ച ചെയ്യാൻ യു പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധി രാവിലെ കോൺഗ്രസ് എം പിമാരുടെ യോഗം വിളിച്ചിരുന്നു ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദു ചെയ്ത കേന്ദ്ര ഗവ നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് എൽഡിഎഫ് നേതൃ ത്വത്തിൽ നാളെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും ഏരിയ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും നടത്തുമെന്ന് കൺവീനർ എം വിജയരാഘവൻ തിരുവനന്തപുരത്ത് പ്രസ്താവ നയിൽ പറഞ്ഞു കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതിയുടെ അടിയന്തര യോഗം തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ പുരോഗമിക്കുന്നു ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവ നടപടി ചർച്ച ചെയ്യാനാണ് യോഗം അയോധ്യയിലെ രാമജന്മ ഭൂമി ബാബറി മസ്ജിദ് ഭൂമി തർക്ക കേസിൽ സുപ്രീംകോടതിയിൽ അന്തിമവാദം ആരംഭിച്ചു മധ്യസ്ഥ ശ്രമത്തിലൂടെ പ്രശ്ന പരിഹാരത്തിന് നടത്തിയ ശ്രമം പരാജയ പ്പെട്ടതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യ ക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ദിവസവും വാദം കേൾക്കുന്നത് ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ ഡി വൈ ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ എസ് എ നസീർ എന്നിവരാണ് ബെഞ്ചിലെ മറ്റ് ജഡ്ജിമാർ സുപ്രീംകോടതി മുൻ ജഡ്ജി എഫ് എം ഐ ഖലീ ഫുള്ളയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച മൂന്നംഗ മൃധ്യസ്ഥ സമിതി നാലു മാസം ശ്രമിച്ചിട്ടും അന്തിമ തീരുമാനത്തിൽ എത്താൻ കഴി ഞ്ഞില്ലെന്ന് കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു കേസിലെ വാദം കേൾക്കലിൽ തൽസമയ സംപ്രേഷണം അനുവദിക്കില്ലെന്ന് സുപ്രീംകോടതി അറിയിച്ചു ഓഡിയോ റെക്കോർഡിങ്ങും അനുവദിക്കില്ലെന്ന് അഞ്ചംഗ ബെഞ്ച് വ്യക്ത മാക്കി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളെജിലെ വധശ്രമി കേസുമായി ബന്ധപ്പെട്ടവർ പി എസ് സിയുടെ സിവിൽ പൊലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ ആദ്യ റാങ്കുകളിൽ ഉൾപ്പെട്ടതിനെപ്പറ്റി സത്യസന്ധമായ അന്വേഷണമാണ് നടത്തിയതെന്ന് ചെയർമാൻ എം കെ സക്കീർ അറിയിച്ചു പിഎസ് സിയുടെ വിശ്വാസ്യതക്ക് കോട്ടം തട്ടിയിട്ടില്ലെന്നും ചട്ടപ്രകാരം എല്ലാ തെളിവുകളും അന്വേ ഷണ വിധേയമാക്കിയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറ ഞ്ഞു പരീക്ഷാ ഹാളിൽ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ട തായി ഒപ്പം പരീക്ഷ എഴുതിയവരോ ഇൻവിജില്ലേറ്റർമാരോ കണ്ടെ ത്തിയിട്ടില്ല പരീക്ഷ നടന്ന ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ രണ്ട് നമ്പറുകളിൽ നിന്ന് എസ് എം എസ് വന്നിരുന്നുവെന്നും പ്രതിക ളുടെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു പ്രതികൾക്കെതിരെ പൊലീസ് കേസിന് ശുപാർശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പി എസ് സി പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച് സിബിഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്ത ല ആവശ്യപ്പെട്ടു ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സിബിഐ അന്വേഷണമല്ലാതെ മറ്റൊരന്വേഷണം തൃപ്തിക രമല്ലെന്ന് ചെന്നിത്തല വൃക്തമാക്കി പരീക്ഷയിൽ ക്രമേക്കേട് നട ന്നെന്ന വിജിലൻസ് കണ്ടെത്തലോടെ മുഖ്യമന്ത്രിയുടെ വിശ്വാ സൃതയും തകർന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ പൊലീസ് അന്വേഷി ച്ചാൽ സത്യം പുറത്തുവരില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എസ് എഫ് ഐ നേതാക്കൾക്ക് റാങ്ക് ലഭിക്കാൻ പി എസ് സി അംഗങ്ങളും ഉദ്യോഗസഥരും ഒത്താശ ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു പരീക്ഷ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിൽ ചട്ടലം ഘനം ഉണ്ടായിട്ടുണ്ട്

ഇക്കാര്യത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ചെയർമാന്റെ പങ്കും അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

പരീക്ഷയിൽ ഉണ്ടായ അട്ടിമറി പി എസ് സി തന്നെ അംഗീക രിക്കുന്നതിന് തുല്യമാണ് മൂന്നുപേരെ പട്ടികയിൽ നിന്ന് പുറത്താ ക്കാനെടുത്ത തീരുമാനമെന്നും ചെന്നിത്തല പറഞ്ഞു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജിൽ ഉത്തരക്കടലാസ് ചോർന്ന സംഭവത്തിൽ മുൻ പ്രിൻസിപ്പാളിനെയും അധ്യാപക രെയും കന്റോൺമെന്റ് പൊലീസ് ചോദ്യം ചെയ്തു

കേസിൽ എസ് എഫ് ഐ നേതാ ക്കളായ പ്രണവിനെയും നസീമിനെയും പ്രതിചേർക്കാൻ തീരു മാനിച്ചതായും റിപ്പോർട്ടുണ്ട്

മൂന്ന് ജില്ലകളിൽ കാലാ വസ്ഥാ വകുപ്പ് മറ്റന്നാൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോ ട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ വ്യാഴാഴ്ച്ച അതിശക്തമായ മഴ യുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് മുതൽ ഈ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയി ച്ചു ഇടുക്കി ജില്ലയിലും മഴ ശക്തമാണ് കണ്ണൂർ പാലക്കാട് കോഴിക്കോട് കാസർകോട് ആലപ്പുഴ ഇടുക്കി മലപ്പുറം ജില്ലക ളിൽ ഇന്ന് മുതൽ ഒൻപതാം തീയതി വരെ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മലയോര മേഖലയിലെ കനത്ത മഴയിൽ വലുതും ചെറുതുമായ എട്ട് പുഴകൾ ക്ര ്കവിഞ്ഞു

ഇതേതു ടർന്ന് മേൽമുറി ഭാഗത്ത് നിന്ന് രണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പി ച്ചു വയനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയി ലാണ് പാലക്കാട് ജില്ലയിൽ മഴ ശക്തമായി അട്ടപ്പാടി ഷോളയൂർ പഞ്ചായത്തിലെ ഹയർസെക്കൻഡറിവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു

കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്നു പുലർച്ചെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ കണ്ണൂർ നഗരത്തിലും പരിസരങ്ങളിലും ഒട്ടേറെ മരങ്ങൾ കടപുഴകി

ഡൽഹിയിലെ സാക്കിർ നഗ്റിൽ ബ്ഹുനിലകെട്ടിടത്തിന് തീപിടിച്ച് ആറ് പേർ മരിച്ചു

ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് പ്രാഥ മിക വിലയിരുത്തൽ

അമേ രിക്കയിലെ രണ്ടു മത്സരങ്ങളും ജയിച്ചതിനാൽ അപ്രധാന കളി യെന്ന നിലയിൽ പുതിയ കളിക്കാർക്ക് അവസരം നൽകുമെന്ന് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അറിയിച്ചു രാത്രി എട്ടിന് പ്രൊവി ഡൻസ് സ്റ്റേഡിയത്തിലാണ് കളി സംസ്ഥാന സീനിയർ ഫുട്ബോൾ രണ്ടാം സെമിയിൽ കൊച്ചി യിൽ ഇന്ന് പാലക്കാടും തൃശൂരും മാറ്റുരയ്ക്കും കഴിഞ്ഞ ദിവ സത്തെ മത്സരത്തിൽ ഇടുക്കിയെ പരാജയപ്പെടുത്തി കോട്ടയം ഫൈനലിൽ പ്രവേശിച്ചു

നിലയ്ക്കാത്ത നിലവിളികളുടെ ഓർമ്മയുമായി ഇന്ന് ഹിരോ ഷിമ ദിനം ഓരോ യുദ്ധവും ജൈവഘടനയ്ക്കും മാനവ രാശിക്കും ഏൽപ്പിക്കുന്ന ദുരിതങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് യുദ്ധ വിരുദ്ധ സന്ദേശങ്ങളുമായി ലോകമെങ്ങും ദിനാചരണ പരിപാടി കൾ നടക്കുകയാണ്

ലോകത്ത് ആദ്യമായി നടന്ന അണുബോംബ് ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ജീവനുകളാണ് നിമിഷനേരം കൊണ്ട് ഇല്ലാതായത് സ്വർണ്ണവിലയിൽ ഇന്നും വർദ്ധന

അന്താ രാഷ്ട്ര വിപണിയിൽ സ്വർണവില വർദ്ധിച്ചതാണ് ആഭ്യന്തരവിപ ണിയിലും വില കൂടാൻ കാരണം പാചകവാതകം വീടുകളിൽ എത്തിക്കുന്ന വിതരണ തൊഴി ലാളികൾ അമിതകൂലി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോഴിക്കോട് ഡെപ്യൂട്ടി കല ക്ടർ സി ബിജു മുന്നറിയിപ്പ് നൽകി പാചകവാതക അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കാപ്പാട് അടിവാരം തുഷാരഗിരി റോഡിന്റെ ഓമശ്ശേരി മുതൽ വേനപ്പാറ വരെ നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചതായി കാരാട്ട് റസാഖ് എം എൽ എ കോഴിക്കോട്ട് അറിയിച്ചു സാങ്കേ തിക അനുമതി ലഭിച്ച് ടെണ്ടർ നടപടി പൂർത്തിയാക്കി പണി ഉടൻ ആരംഭിക്കുമെന്നും എം എൽ എ അറിയിച്ചു കോഴിക്കോട് മൂന്നാം നമ്പർ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ഡോ

ഈസ്റ്റ്ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിന് സ്ഥിരം കെട്ടിടവും താൽക്കാലിക കെട്ടിടവും നിർമ്മിക്കുന്നതും ചർച്ച ചെയ്തു പ്രവൃത്തി വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി രാഘവൻ അറിയിച്ചു കായംകുളം കൊറ്റുകുളങ്ങരയിൽ ദേശീയപാതയിൽ സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്ന വാൻ ഇടിച്ച് രണ്ട് പേർ മരിച്ചു കൃഷ്ണപുരം കാപ്പിൽ മേക്ക് പുത്തേഴത്ത്വീട്ടിൽ രാജു പുള്ളിക്കണക്ക് കരിങ്ങാട്ട്ശ്ശേരിൽ ബിജു എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വാനിന്റെ അടിയിൽ വീഴുകയായിരുന്നു

മാഹി എംഎം ഹയർ സെക്കൻ്ററി സ്കൂളിലെ സിജീഷ് ആണ് മരിച്ചത്

വയനാട് മൈസൂർ റോഡിൽ തോൽപ്പെട്ടിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ നായ്ക്കട്ടി പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് വീണ് ഒരാൾ മരിച്ചു കാറോടിച്ചിരുന്ന ഗുരുവായൂർ കോട്ടപ്പടി പുതുശ്ശേരി വീട്ടിൽ മധുവാണ് മരിച്ചത്